ആരംഭിച്ചു

ജമ്മുകാശ്മീരിൽ തീവ്രവാദികളുമായി നടന്ന ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു നാല് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു

വോട്ടെടുപ്പ് സുഗമവും സുതാര്യവുമായി നടക്കാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഒരുക്കിയിരുന്നു

ഓരോ വോട്ടും ജനങ്ങളുടെ ശബ്ദമാണെന്നും അത് ഛത്തീസ്ഖണ്ഡിന്റെ ഭാവി തീരുമാനിക്കുന്നതാണെന്നും കേന്ദ്ര മന്ത്രി രാജ്യവർദ്ധൻ റാത്തോഡ് ട്വിറ്ററിലൂടെ അറിയിച്ചു

ഇന്ന് ജാബുവ റിവാ എന്നിവടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും മധ്യപ്രദേശിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും പ്രചരണരംഗത്തുണ്ട്

ഇന്നലെയായിരുന്നു പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാം

പോളിംഗ് അവസാനിക്കുന്ന ഉടൻ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും

ശബരിമലയിൽ ഭക്തർക്ക് നല്ലരീതിയിൽ ദർശനം ഒരുക്കുകയാണ് ലക്ഷ്യം അതിന് തടസമുണ്ടാക്കുന്നവരെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായി മാത്രം വരുന്നവരെയാണ് ശബരിമലയിൽ തടഞ്ഞതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള പുനർനിർമാണത്തിന് കേന്ദ്രം കൂടുതൽ സഹായം നൽകാത്ത് ഗൌരവതരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഡി എഫ് നേതാക്കൾ ഉൾപ്പെട്ട സംഘത്തെ നിലയ്ക്കലിൽ പോലീസ് തടഞ്ഞു

എൽ എ മാരെ മാത്രം സന്നിധാനത്തേക്ക് കടത്തിവിടാമെന്ന് ശബരിമലയിലെ സ്പെഷ്യൽ ഉദ്യോഗസ്ഥൻ യെതീഷ് ചന്ദ്ര അറിയിച്ചെങ്കിലും യു ഡി എഫ് നേതാക്കൾ ഇതിനോട് യോജിച്ചില്ല തുടർന്ന് അവർ നിലയ്ക്കലിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു

ചെറുകിട ഇടത്തര വൃവസായങ്ങൾക്കുള്ള വായ്പ പുതുക്കി നൽകാനുള്ള പദ്ധതി ആരംഭിക്കണമെന്ന് ഭരണസമിതിയോഗം കേന്ദ്ര ബാങ്കിനോട് ആവശ്യപ്പെട്ടു കരുതൽ ധനത്തിന്റെ ഒരു ഭാഗം രാജ്യത്തിന്റെ വികസന ആവശ്യങ്ങൾക്കായി വിട്ടു നൽകുന്നതിനെപ്പറ്റി പഠിക്കാനും റിസർവ് ബാങ്ക് വിദഗ്ധ സമിതി രൂപീകരിക്കും

ഏറ്റുമുട്ടലിൽ ഒരു കരസേന കമാന്റോ വീരമൃത്യു വരിച്ചു രണ്ട് ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട് നദിഗാം മേഖലയിൽ തീവ്രവാദി സാന്നിധ്യം ഉണ്ടെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന തെരച്ചിൽ ആരംഭിച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു പരിസരത്തു നിന്നും ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാന ഭ്ഷ്ട്ട്ലീസ് മേധാവി ദിൽബാഗ് സിംഗ് ആകാശവാണിയോട് പറഞ്ഞു

മുദ്രവച്ച കവറിൽ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച വിജിലൻസ് കമ്മീഷൻ റിപ്പോർട്ടിനുള്ള അലോക് കേന്ദ്ര വർമ്മയുടെ മറുപടി ചോർന്നതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി ഒരു ഓൺലൈൻ വാർത്താ പോർട്ടലിൽ വന്ന അലോക് വർമ്മയുടെ മറുപടിയുടെ കോപ്പി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ് ജസ്റ്റിസുമാരായ എസ്

കൌൾ കെ

ജോസഫ് എന്നിവരടങ്ങുന്ന ബഞ്ച് വർമ്മയുടെ അഭിഭാഷകനായ ഫാലി എസ് നരിമാന് കൈമാറി

സോനം ഭൂട്ടാൻ പ്രധാനമന്ത്രിയുമായും വിദേശകാർച്ച്മന്ത്രിയുമായും അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ ചർച്ച് നീനടത്തി

സാമ്പത്തികം വികസനം ഊർജ്ജമേഖല എന്നീട് ് രംഗത്തെ സഹകരണത്തെക്കുറിച്ചും പ്രാദേശികവും പരസ്പര താത്പരൃമുള്ള വിഷയങ്ങളെക്കുറിച്ചും ഭൂട്ടാൻ നേതാക്കളുമായി ശ്രീ

സ്ത്രീകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന യജ്ഞം സംഘടിപ്പിക്കുന്നത് വിദ്യാഭ്യാസം സ്വയംതൊഴിൽ ആരോഗ്യം ശുചിത്വം പോഷണം എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന്ടായി മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമായി ശ്രീ പളത്തിസ്ക്മി ഇന്നലെ ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നൂ

പളനിസ്വാമി സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്

പുതുക്കോട്ടയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയോട് കൂടുതൽ ധനസഹായം ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു ചുഴലിക്കാറ്റ് ബാധിച്ചു ആറ് ജില്ലകളെയും ദുരന്തബാധിത മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് നരേന്ദ്രമോദിയോട് ശ്രീ ആവശ്യപ്പെടുമെന്നും പളനിസ്വാമി അറിയിച്ചു

വൈകിട്ട് ബാംബോളിമിലെ ശ്യാമപ്പ്രസ്ട്രാദ് ് മുഖർജി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന സ്ഥിടങ്ങിൽ കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻ റാത്തോഡ് ചലച്ചിത്രത്താർം അക്ഷയ്കുമാർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും

ഇത്തവണ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാവും ശ്രീ മോദി ആശയങ്ങൾ പങ്കുവയ്ക്കുക